ഇന്ത്യാ സന്ദർശനം ഉറ്റുനോക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശനം ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കൊണ്ടുവരാൻ കേന്ദ്രമത്ത്രിസ്ടാ തീരുമാനം

നിയോഗിച്ച മദ്ധ്യസ്ഥർ ഷഹീൻബാഗ് സന്ദർശിച്ചു

ശുചിമുറികൾ നിർമ്മിക്കാൻ കേരളത്തിൽ മന്ത്രിസഭാ തീരുമാനം

തന്നെ സ്വീകരിക്കാൻ വൻ ജനാവലി എത്തുമെന്നാണ് ശ്രീ മോദി പറഞ്ഞത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണെന്നാണ് മനസ്സിലാക്കുന്നത് സന്ദർശനത്തിനിടെ ഇന്തൃയുമായി വൃാപാര കരാർ ഒപ്പുവയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞു

അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ സ്വീകരിക്കും

പിന്നീട് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രിയും സബർമതി ആശ്രമം സന്ദർശിക്കും ഇതിന് ശേഷം നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ മൊടേര സ്റ്റ്രേഡിയത്തിൽ നമസ്തേ ട്രംപ് പരിപാടിയിൽ ഇരു ന്റേതാക്കിളും സംബന്ധിക്കും റോഡ്ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്

സുപ്രധാന രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനാണിത്

കഴിഞ്ഞ വർഷം ഹൂസ്റ്റണിൽ നടന്ന ഹൌഡിമോഡിക്ക് സമാനമായ പരിപാടിയായിരിക്കും അഹമ്മദാബാദിൽ നടക്കുന്ന നമസ്തേട്രംപ് എന്നും അദ്ദേഹം വ്യക്തമാക്കി

ന്യൂഡൽഹിയിൽ മന്ത്രിസഭായോഗ തീരുമാന്ങ്ങൾ വിശദീകിരക്കുകയായിരുന്നു അദ്ദേഹം

സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ സുതാര്യത ഉറപ്പു വരുത്താൻ സമിതിക്ക് രൂപം നൽകുമെന്നും ശ്രീ

വെളിയിട വിസർജ്ജന വിമുക്തിക്ക് കൂടുതൽ പ്രാധാന്യാ നൽകുന്നതായിരിക്കും പദ്ധതി

ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ വ്യാപാരത്തിലെ കൃത്രിമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു

വ്യാപാരത്തിലെ കൃത്തിമുക് ്തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ ഉപഭോക്ത്യ സംരക്ഷണ അതോറിട്ടിയുടെ കീഴിൽ അന്വേഷണ സമിതി രൂപീകരിക്കുമെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ മന്ത്രി പാസ്വാൻ പറഞ്ഞു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ചട്ടങ്ങൾക്ക് ഒന്നര മാസത്തിനുള്ളിൽ അന്തിമ രൂപമാകുമെന്ന് മന്ത്രി പറഞ്ഞു

ചർച്ച പ്രതിഷേധിക്കാനുള്ള അവകാശം പരമോന്നത കോടതി ശരി വച്ചിട്ടുണ്ടെങ്കിലും അത് മറ്റ് പൌരന്മാരുടെ അവകാശത്തെ ബാധിക്കരുതെന്ന് അവർ പറഞ്ഞു പ്രതിഷേധക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനായി ക്രിയാത്മക ഇടപെടൽ നടത്താൻ സഞ്ജയ് ഹെഗ്ഡെ സാധന രാമചന്ദ്രൻ എന്നിവരെയാണ് കോടതി നിയോഗിച്ചത് എല്ലാവരുടെയും വാക്കുകൾ കേൾക്കാൻ തയ്യാറാണെന്നും പ്രശ്നത്തിന് പരിഹാരം കാണുമെണ്ണൂർ സാധന രാമചന്ദ്രൻ പറഞ്ഞു

കൂടുതൽ വിളവ് ലഭ്യമാക്കി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ കഴിയും മണ്ണിന്റെ സ്ഥിതി സംബന്ധിച്ച് കർഷകർ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് കാർഡ് പുറത്തിറക്കവെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടെങ്കിലേ വിളവ് കൂടുകയുള്ളൂവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി

ന്യൂസ് ഡസ്ക് ആകാശവാണി

നിയമന പ്രക്രിയയിൽ അഴിച്ചുപണി വേണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു നിലവിലെ നിയമന പ്രക്രിയ ഭരണഘടനാ വിരുദ്ധമാണെന്നും പുതിയ വിജിലൻസ് കമ്മീഷണറായി സഞ്ജയ് കോത്താരിയുടെ പേര് ഉയർന്നുവന്നതിൽ സർക്കാർ പലതും മറച്ചുവയ്ക്കുകയാണെന്നും കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുക്കൽ പ്രക്രിയിലൂടെ കടന്നുപോകാതെ പെട്ടെന്ന് സഞ്ജയ് കോത്താരിയുടെ പേര് ഉയർന്നുവന്നതിൽ ദുരൂഹതയുണ്ട്

ചൈനയ്ക്ക് സഹായം നൽകുന്നതിന്റെ ഭാഗമായി മരുന്നുകളും വിമാനത്തിൽ ഉണ്ട്രുകും

കെജ്രിവാൾ പിന്നീട് ട്വീറ്റ് ചെയ്തു

കേന്ദ്ര മന്ത്രാലയങ്ങൾ വകുപ്പുകൾ സ്ഥാപനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ നേട്ടങ്ങളും പുരോഗതിയും ഉൾപ്പെടെ സമ്പൂർണവും സമഗ്രവുമായ എല്ലാ വിവരങ്ങളും ഇതിലുണ്ടെന്ന് ശ്രീ

രഹസ്യവിവരത്തെ തുടർന്ന് കഴിഞ്ഞ രാത്രി ജമ്മുകശ്മീർ പൊലീസും കരസേനയും സി

എഫും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു

ശിവജിയ്യുളട് ജന്മസ്ഥലമായ പൂനെയിലെ ശിവനേരി കോട്ടയ്യിൽ അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയായിരുന്നു ശ്രീ